കെ ശൈലജ

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി വാർത്തകൾ വിശദമായി കേന്ദ്ര ബജറ്റ് ഇന്ന്

പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ പൂർണമായും കടലാസ് രഹിതമായാണ് ബജറ്റ് അവതരണം നിർമ്മലാ സീതാരാമന്റെ മൂന്നാമത്തെ ബജറ്റാണിത് കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായി തയാറാക്കുന്ന ബജറ്റെന്ന നിലയിൽ സാമ്പത്തിക മേഖലയെ ശക്തമാക്കാൻ നിരവധി നിർദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ

ഡി പി വളർച്ച ഉണ്ടാകുമെന്ന് വിലയിരുത്തി ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ലോക്ക്ഡൌണിന്റേയും കോവിഡ് മഹാമാരിയുടേയും പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച് ശക്തമായി തിരിച്ചു വരികയാണെന്നും ആത്മനിർഭർ ഭാരത് മിഷൻ സാമ്പത്തിക വ്യവസ്ഥയെ ഭദ്രമാക്കാൻ സഹായിച്ചതായും സാമ്പത്തിക സർവേയിൽ പറയുന്നു

ന്യൂസ് ഓൺ എയർ വെബ്സൈറ്റിലും ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും പരിപാടി കേൾക്കാം രുര ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നുമുതൽ വാഹന പരിശോധന കർക്കശമാക്കും ഇന്നു മുതൽ ആറു ദിവസം ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് പരിശോധനകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്

മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധ

കെ ശൈലജ അറിയിച്ചു ഇരുപത്തി നാലര ലക്ഷത്തോളം കുട്ടികൾക്ക് വാക്സിൻ നൽകാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്

ഇന്നലെ വാക്സിൻ നൽകാതിരുന്ന കുട്ടികൾക്ക് വരും ദിവസങ്ങളിൽ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി മരുന്ന് നൽകും കോവിഡ് പോസിറ്റീവായതുകൊണ്ടും ക്വാറന്റീനിൽ കഴിയുന്നതുകൊണ്ടും വാക്സിൻ നൽകാൻ കഴിയാത്ത കുട്ടികൾക്ക് ക്വാറന്റീൻ കാലത്തിന് ശേഷം തുള്ളി മരുന്ന് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തെ സിനിമാ ശാലകളിൽ ഇന്നു മുതൽ മുഴുവൻ സീറ്റുകളിലും കാണികളെ പ്രവേശിപ്പിക്കാം സാനിറ്റൈസേഷൻ കോവിഡ് പ്രോട്ടോകോൾ എന്നിവ പൂർണമായി പാലിച്ചായിരിക്കണം തിയേറ്ററുകളുടെ പ്രവർത്തനം

പ്രദർശനാനുമതി സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും അതാതു പ്രദേശത്തെ സാഹചര്യമനുസരിച്ച് അധിക നടപടികൾ സ്വീകരിക്കാവുന്നതാണ്

രാജ്യത്തിന്റെ തീരമേഖലയ്ക്കും കടൽ തൊഴിലാളികൾക്കും തീരവാസികൾക്കും നേരെയുണ്ടാകുന്ന ഏത് ഭീഷണിയേയും നേരിടാൻ തികച്ചും സുസജ്ജമാണ് തീര രക്ഷാ സേനയെന്ന് കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ കെ

ലോകത്തെ മികച്ച നാലാമത്തെ തീര രക്ഷാ സേനയാണ് ഇന്ത്യയുടേത്

രുര പുതിയ കാർഷിക നിയമങ്ങൾ കാർഷികോൽപന്നങ്ങളുടെ താങ്ങുവിലയേയും മണ്ഡി സമ്പ്രദായത്തേയും ബാധിക്കില്ലെന്ന് കൃഷി മന്ത്രി നരേന്ദ്രസിങ് തോമർ ആവർത്തിച്ച് വ്യക്തമാക്കി പ്രാദേശിക കാർഷികോൽപ്പന്ന വിപണന കേന്ദ്രങ്ങൾ കൂടുതൽ മത്സരാത്മകമാവുന്നതോടെ കാർഷിക താൽപര്യങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം ലഭിക്കുമെന്നും എൻ സി പി നേതാവ് ശരത് പവാറിന്റെ പരാമർശത്തോട് പ്രതികരിച്ച മന്ത്രി വിശദീകരിച്ചു ദേദ സംസ്ഥാന ഗവൺമെന്റിന്റെ സാന്ത്വന സ്പർശം പരാതി പരിഹാര അദാലത്തിന് ഇന്ന് തുടക്കമാകും കൊല്ലം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ഇന്ന് അദാലത്ത് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രജ്ന കെ ആസാദ് വോയ്സ് ദേദ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അദാലത്തിൽ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികൾക്കും ആവശ്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കും കൊല്ലത്ത് മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മ കെ രാജു കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ആലപ്പുഴയിൽ ജി സുധാകരൻ ഡോ തോമസ് ഐസക് പി തിലോത്തമൻ എന്നിവരും ത്വശൂരിൽ എ സി മൊയ്തീൻ വി എസ് സുനിൽകുമാർ സി രവീന്ദ്രനാഥ് എന്നിവരും അദാലത്തിന് നേതൃത്വം നൽകും

പി രാമകൃഷ്ണൻ ഡോ

ടി ജലീൽ എ കെ ശശീന്ദ്രൻ എന്നിവരാണ് അദാലത്തിൽ പങ്കെടുക്കുന്നത് കണ്ണൂരിൽ ഇ പി ജയരാജൻ കെ കെ ശൈലജ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ നേതൃത്വം നൽകും ഓരോ ജില്ലയിലും മൂന്ന് കേന്ദ്രങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായാണ് അദാലത്ത് മുൻകൂട്ടി സ്വീകരിച്ച പരാതികൾ അദാലത്തിൽ പരിഗണിക്കും കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിലും കണ്ണൂരിൽ ഇരിട്ടിയിലുമാണ് അദാലത്ത് കൊല്ലത്തും ആലപ്പുഴയിലും തൃശൂരിലും ജില്ലാ ആസ്ഥാനങ്ങളിലുമായിരിക്കും അദാലത്തുകൾ

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ സംവാദ പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്ന് മന്ത്രി എം

ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് കെ ഫോൺ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഇടുക്കി അടിമാലി ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞു

മൂലമറ്റത്ത് വൈദ്യുതി വകുപ്പ് എഞ്ചിനീയർമാരുടെ പരിശീന ഗവേഷണ കേന്ദ്രത്തിന്റെ കെട്ടിട സമുച്ചയവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് മധു സമ്പാളൂർ സ്മാരക പുരസ്കാരം മാതൃഭൂമി മുൻ ചീഫ് എഡിറ്റർ എം പി സുരേന്ദ്രന് അദ്ദേഹം സമ്മാനിച്ചു രംഭ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും ഉച്ചയ്ക്ക് ജില്ലാ അതിർത്തിയായ ഒളവറ പാലത്തിന് സമീപം യാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകീട്ട് കണ്ണൂർ ടൌൺ സ്ക്വയറിൽ സമാപിക്കും ദേദ ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം

കെ മോഹൻ ബഗാൻ അവസാന നിമിഷങ്ങളിൽ നേടിയ ഗോളുകളിലൂടെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു ഇന്ന് വൈകീട്ട് ഗോവയിൽ ഒഡീഷ എഫ് സി ജംഷഡ്പൂരിനെ നേരിടും

അഹമദാബാദിൽ ഇന്നലെ ബറോഡയെ ഏഴു വിക്കറ്റിന് തോൽപ്പിച്ചാണ് തമിഴ്നാട് ചാംപ്യൻമാരായത് രുര കളിക്കളങ്ങളുടെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകുന്നതെന്ന് മന്ത്രി ഇ

എടപ്പാൾ ഗവ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മൈതാനവും മിനി സ്റ്റേഡിയവും നാടിന് സമർപ്പിച്ച് സംസാരിക്കയായിരുന്നു മന്ത്രി കിഫ്ബി പദ്ധതിയുൾപ്പെടുത്തി നിർമിച്ച മൂന്നാമത്തെ സ്റ്റേഡിയമാണ് എടപ്പാളിലേത് രംഭ കണ്ണൂർ ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കയർ ഭൂ വസ്ത്രം ഉപയോഗിച്ച് മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തും കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ

ഇതുവരെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്കായിരുന്നു ഇ സ്റ്റാമ്പിങ് സംവിധാനം ഇന്നു മുതൽ ഇതിൽ കുറഞ്ഞ തുകയ്ക്കും ഇ സ്റ്റാമ്പിങ് നിർബന്ധമാകും